പ്രചാരണം ഊർജ്ജിതം

കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ വിടവാങ്ങി അന്തൃം ഇന്ന് പുലർച്ചെ കൊയിലാണ്ടിയിലെ വസതിയിൽ

കോൺഗ്രസ് ബിജെപി സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തുവന്നതോടെ സംസ്ഥാനത്ത് ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു കുറ്റ്യാടി ഒഴിച്ചുള്ള എല്ലാ സീറ്റിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പ്രചരണത്തിലാണ്

ഡി

ഡി

വെള്ളിയാഴ്ച വരെയാണ് പ്പത്രിക സമർപ്പിക്കാനുള്ള സമയം

തെരഞ്ഞെടുപ്പ് കമീഷന്റെ നിർദേശമനുസ്രിച്ച് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വരണാധികാരികൾ പത്രിക സ്വീകരിക്കുന്നത്

അസമിൽ ബിജെപി മുതിർന്ന നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമായ രാജ്നാഥ് സിങ് അമിത് ഷാ എന്നിവർ നിരവധി തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു കോൺഗ്രസ് എ

ഡി എഫ് അസം ഗണപരിഷത്ത് ഇടതുപാർട്ടികൾ എന്നീ കക്ഷികളും തെരഞ്ഞെടുപ്പ് റാലികൾ നടത്തി

ബിജെപിയും തൃണമൂൽ കോൺഗ്രസും എല്ലാ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ സി

പി ഏഴ് സി

ഐ രണ്ട് ഫോർവേഡ് ബ്ലോക്ക് രണ്ട് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി

ഇന്ന് ഉച്ചയ്ക്ക് ലിലബാരി വിമാനത്താവളത്തിൽ എത്തുന്ന അദ്ദേഹം ധാക്കുഖാനയിലെ എം

ഫീൽഡിൽ നടക്കുന്ന പൊതുറാലിയെ അഭിസംബോധന ചെയ്യുമെന്ന് ബ്ള്ജപ്പി ് അറിയിച്ചു

കോവിഡ് സാഹചര്യത്തിൽ വിദേശ ഇന്ത്യക്കാർക്കും പ്രവാസികൾക്കുമായി കേന്ദ്ര സർക്കാൻ നടപ്പാക്കിയ സമാശ്വാസ പദ്ധതികളെ കുറിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ ഇരു സഭകളിലും ഇന്ന് പ്രത്യേക പ്രസ്താവന നടത്തും ആഭ്യന്തര മന്ത്രി അമിത് ഷാ ലോക്സഭയിൽ ഒരു ബിൽ അവതരിപ്പിക്കും ഡൽഹി ദേശീയ തലസ്ഥാനമേഖല നിയമ ഭേദഗതിയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്

ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ നേട്ടം കൈവരിച്ച അപൂർവ്വം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ

പ്രത്യേക നിരീക്ഷകനും സംസ്ഥാന ചീഫ് സെക്രട്ടലിയ്ക്കും സമർപ്പിച്ച റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് നടപടി

രഹസ്യ വിവരത്തിന്റെ ആട്ടി്സ്ഥാനത്തിൽ ബസ്തി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നാണ് മുഹമ്മദ് റാഷിദിനെ അറസ്റ്റ് ചെയ്തത്

ഐ യുടെ പരിശീലന പരിപാടികളിൽ പങ്കെടുക്കാൻ ലഖ്നൌ വഴി മുംബൈയിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത്

വിദ്യാർത്ഥികളുടെ പരീക്ഷാ സമ്മർദ്ദം കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ചയിലേക്ക് മികച്ച പിന്തുണയാണ് വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും അദ്ധ്യാപകരിൽ നിന്നും ലഭിച്ചത്

കുട്ടികളുടെ പരീക്ഷാസമ്മർദ്ദം ലഘൂകരിച്ച് പരീക്ഷകളെ അഭിമുഖീകരിക്കാൻ ആത്മവിശ്വാസം പകരാൻ വേണ്ടിയാണ് പരീക്ഷാ പേ ചർച്ച എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്

ഒൻപത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് പേര് രജിസ്റ്റർ ചെയ്തത്

ഇതിൽ രാജ്യമെമ്പാടുമായുള്ള രണ്ടായിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും വിജയികളായി ഇവർക്ക് പരീക്ഷാ പേ ചർച്ചയുടെ ഭാഗമായ്ക് പ്രത്യേക സമ്മാനം നൽകും

കോവിഡ് മാനദണ്ഡം പാലിച്ച് പൂർണമായും ഓൺലൈനായാണ് ഇക്കുറി പരിപാടി

കൊയിലാണ്ടിയിലെ വീട്ടിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്തൃം

ചലച്ചിത്ര താരങ്ങളടക്കം വൻ ശിഷ്യസമ്പത്തിനുടമയായിരുന്നു ഗുരു ചേമഞ്ചേരി രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് കേരള കലാമണ്ഡലത്തിന്റെ വിശിഷ്ട സേവനത്തിനുള്ള പുരസ്ക്കാരമടക്കം നിരവധി പുരസ്ക്കാരങ്ങൾ കൈവരിച്ചിട്ടുണ്ട്

നിര്യാണത്തിൽ ഗോവ മുഖ്യമന്ത്രി ഡോ പ്രമോദ് സാവന്ത് പ്രതിപക്ഷ നേതാവ് ദിഗംബർ കാമത്ത് തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി

നിലവിൽ സർവ്വീസ് നടത്തുന്ന അൺ റിസർവ്ഡ് ട്രെയിനുകളിൽ മാത്രമാണ് സീസൺ ടിക്കറ്റുകൾ ഉപയോഗിക്കാനാവുക റെയിൽവേ ബോർഡിന്റെ അനുമതിയോടെ ഇന്നുമുതൽ കൂടുതൽ മെമു ട്രെയിനുകളും ആരംഭിക്കും

ഇന്നുരാവിലെ അഞ്ചിന് പൂജകൾ തുടങ്ങി

മോറിഗാവ് ജില്ലയുടെ ഡെപ്യൂട്ടി കമ്മീഷണർ ലീന ഭാവിനെ സ്ഥലം മാറ്റിയതിനെ തുടർന്നാണ് പുതിയ നിയമനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണം അസം പഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ഇതുസംബന്ധിച്ച ഉത്തരവിറക്കി